സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡിന്റെ കെടുതികൾ ഗ്രാമങ്ങളിലേക്ക് പടരുന്നത് തടയണമെന്നും പ്രധാനമന്ത്രി

ഇന്നലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് വോയിസ് ഗ്രാമങ്ങളിലേക്ക് കോവിഡിന്റെ കെടുത്രീകൾ പടരുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണ്ട്മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി സംസ്ഥാന മുഖ്യമന്ത്രിമാരോട് ആവ്ക്യപ്പെട്ടു

പതുക്കെയാണെങ്കീലും രാജ്യത്ത് സാമ്പത്തിക വിനിമയം പുനരാരംഭിച്ചിട്ടുണ്ട്

തീവ്ര വ്യാപന മുള്ള മേഖലകളേയും സ്ഥലങ്ങളേയും നേരിടേണ്ട രീതിയെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്

മുന്നോട്ടുള്ള പാത യോജിച്ച് തീരുമാനിക്കാ മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എന്നാൽ മഹാരാഷ്ട്ര തമിഴ്നാട് പഞ്ചാബ് ബീഹാർ അടക്കം എട്ട് സംസ്ഥാനങ്ങൾ ലോക്ഡൌൺ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു

ഇന്നലെ വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിച്ച വീഡിയോ കോൺഫറൻസിംഗ് രാത്രി ഒമ്പത് മണിയോടെ യാണ് അവസാനിച്ചത് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമ്മല സീതാരാമൻ രാജ്നാഥ് സിംഗ് ഹർഷ വർദ്ധൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തുന്ന അഞ്ചാമത്തെ ചർച്ച യായിരുന്നു ഇന്നലത്തേത്

എന്നതി നാൽ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട മാർഗനിർദേശങ്ങളിൽ ന്യായ മായ മാറ്റം വരുത്താനുള്ള അനുമതി സംസ്ഥാനങ്ങൾക്ക് നൽകണ മെന്ന് പ്രധാനമന്ത്രിയുമായുള്ള വീഡിയോ കോൺഫറൻസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചു ഓരോ സംസ്ഥാനത്തെ യും സ്ഥിതിഗതികൾ വിലയിരുത്തി നീയ്ട്രിക്ക്ണങ്ങൾക്ക് വിധേയമായ പൊതുഗതാഗതം അനുവദിക്കാനുള്ള് അന്നുമതി സംസ്ഥാനങ്ങൾക്ക് നൽകണം റെഡ്സോൺ ഒഴിക്കിയുള്ള പട്ടണങ്ങളിൽ നിയന്ത്രണ ങ്ങൾക്ക് വിധേയമായി മെട്ടോ് റെ്യിൽ സർവ്വീസ് അനുവദിക്കണ മെന്ന് കേരളം ആവശ്യപ്പെട്ടു പ്രിദേശ രാജ്യങ്ങളിൽനിന്ന് പ്രത്യേക വിമാനങ്ങളിൽ പ്രവാസ്ത്രീക്ളെ കൊണ്ടുവരുമ്പോൾ വിമാനത്തിൽ അവരെ കയറ്റുന്നതിന് മുമ്പ് ആൻറി ബോഡി ടെസ്റ്റ് നടത്തണം അന്തർ സംസ്ഥാന യാത്രകൾ നിയന്ത്രണങ്ങൾക്കു വിധേയമായിരി ക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു

പരിശോധനകൾ അടിസ്ഥാന മാക്കി രോഗലക്ഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ വിലയിരുത്തി യുമാണ് കോവിഡ് രോഗികളുടെ ഡിസ്ചാർജ് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ വ്യക്തമാക്കി

റവന്യൂ നഷ്ടം നികത്താൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്

ആർ സി

കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നാല് പേർക്കും പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർ ക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്